മുൻവിധിയോ പിടിവാശിയോ ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കൂടാതെ അമേരിക്ക ഓസ്ട്രേലിയ സിംഗപ്പൂർ തായ്ലാന്റ് എന്നീ രാഷ്ട്രനേതാക്കൻമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തുറന്നതും ആസിയാൻ കേന്ദ്രീകൃതവുമായ പ്രാദേശിക വാസ്തുവിദ്യയുടെ ഒരു അവിഭാജൃ ഘടകമായി കിഴക്കൻ ഏഷ്യ ഉച്ചകോടി മാറിയിരിക്കുകയാണെന്ന് ഉച്ചകോടിയുടെ ചെയർമാൻ രാജ്യമായ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ഹെസിൻ ലോഗ് അഭിപ്രായപ്പെട്ടു ആസിയാൻ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ പെസഫിക് അഭിവൃദ്ധിയുടെ ഭാഗമായി വ്യാപാര നിക്ഷേപ മേഖലയിലും സമുദ്രമേഖലയിലും ശ്രീ

ശശാങ്കിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച ഗവണ്മെന്റിതര സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നൂട്ടത്തിയിരുന്നു

കടലൂരിനും പാമ്പൻ മേഖലയ്ക്കുമിടയിൽ നാഗപട്ടണത്തിനടുത്തായാണ് ഗജ ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി തീരം തൊടുക

മീറ്റർ വടക്കുകിഴക്കായി ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു

ഇത് ഗവണ്മെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി തുടരും

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുൻനിര ബാങ്കുകളിലെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇത്തരം അമ്പതിലധികം സംർംഭങ്ങളുടെ ഉത്പന്നങ്ങൾ മേളയിൽ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഗ്രാമീണ വൃവസായ സംരംഭങ്ങൾ എന്നതാണ് വ്യാപാരമേളയുടെ പ്രമേയം

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗൂത്ത് സജീവമാണ്

ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ്അഭൂർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്പദ്ദേൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിജെപി ഡൽഹി സ്ത്രസ്ഥാന അദ്ധ്യക്ഷൻ മനോജ് തിവാരി എന്നിവർ വിവിധ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്

മാറ്റത്തിന്റെ സന്ദദേശവാഹകരാകാനും കർഷക ക്ഷേമത്തിനായി പ്രവർത്തിക്കാനും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു ബിഹാറിലെ സമസ്തിപൂരിൽ ഡോ

സർവകലാശാലയിൽ പെൺകുട്ടികളായ പഠിതാക്കളുടെ എണ്ണം കുറവാണെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി

ന്യൂഡൽഹി നോയ്ഡ ചാണ്ടിഗർ അലിഗഡ് ഭോപ്പാൽ പൂനെ ഹൈദരാബാദ് ബെംഗളൂരു ചെന്നൈ ജയ്പൂർ എന്നിവിടങ്ങളിലാണ് ലെയ്സൺ ഓഫീസർമാരെ നിയോഗിക്കുക

രാജ്യത്ത് നിലനിൽക്കുന്ന പ്രതികൂലമായ്ക്ക് സാഹചര്യങ്ങൾ മൂലമാണ് പ്രസിഡന്റിന് തന്നെ പ്രധാന്തമിന്തിയ്കായി നിയമിക്കേണ്ടി വന്നതെന്ന ശ്രീ

ഇത്തെങ്ക്ടർന്ന് റെനിൽ പക്ഷം ഈ പ്രസ്താവനിയിന്മേൽ വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടത് വാക്കേറ്റത്തിന് ഇടയാക്കി

നിർദ്ദിഷ്ട കരാറിലെ നിബന്ധനകൾ പാലിക്കാനാകില്ലെന്ന് റാബ് പറഞ്ഞു

കരട് ഉടമ്പടിക്കെതിരെ ജൂനിയർ നോർതേൺ അയർലാന്റ് മന്ത്രി ശൈലേഷ് വാര രാജി വച്ച് ഒരുമണിക്കൂറിനു ശേഷമാണ് റാബിന്റെയും രാജി

ന്യൂസ് ഡസ്ക് ആകാശവാണി

ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ചേർന്ന സർവ്വകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സുപ്രീംകോ ടതി വിധി നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവണ്മെന്റിന് മാറിനിൽക്കാനാവില്ല ഭക്തർക്ക് സമാധാനപരമായി ദർശനം നടത്താനുളള സാഹചര്യം ഒരുക്കാനാണ് ഗവണ്മെന്റ് ശ്രമിക്കുന്നത്

ആദ്യ രണ്ട് മത്സരങ്ങളിലും ജയിച്ചു ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ ജയം ഉറപ്പാക്കാനായാൽ ്സെമി ഫൈനലിൽ കടക്കാം